തീവ്രവാട്ടികളുടെ സാന്നിധ്യം ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ജില്ലയിലെ ആറംപോര ഗ്രാമത്തിൽ നടന്ന തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്

നിരവധി ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് ഇന്നത്തെ കൌൺസിൽ യോഗം

ജെ

വനിതാ പ്രവർത്തകരുടെ ദ്വിദിന സമ്മേളനം രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് ബി ജെ പി എന്നും നിലകൊള്ളുമെന്നും എല്ലായ്പ്പോഴും യശസ്സ് ഉയർത്താൻ പാർട്ടി പരിശ്രമിക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

തരംതാണ രാഷ്ട്രീയത്തിന്രിയി രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ഉന്നയിക്കുകയാണെന്റും ബി ജെ പി മാധ്യമ വക്താവ് അനിൽ ബാലുനി പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തെ സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്ന വാക്കുകളാണ് എം വീരപ്പമൊയ്ലി നടത്തിയതെന്നും അനിൽ ബാലുനി കുറ്റപ്പെടുത്തി

ചെലവ് കുറഞ്ഞ ആരോഗ്യ സംരക്ഷണവും പകർച്ചവ്യാധികളുടെ ഉൻമൂലനവും ലക്ഷ്യമിടുന്ന പരമ്പരാഗത ബദൽ ആരോഗ്യ സംവിധാനമായിരുന്നു യോഗത്തിന്റെ ചർച്ചാവിഷയം പരമ്പരാഗത ബദൽ ആരോഗ്യ സംവിധാനങ്ങൾ ആഗോളീകരിക്കുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ സമ്മേളനം തീരുമാനിച്ചു

അമേരി പൌരൻമാരിൽ പ്രി നിന്ന് വ്യാജ ക്കൻ ടെലഫോൺ സന്ദേശങ്ങൾ ഉപ്യോഗിച്ച് പണം തട്ടിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു

പ്രാഥ മിക അന്വേഷണത്തിൽ അറസ്റ്റിലായവർക്ക് അമേരിക്ക ദുബായ് ചൈന എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാജ കോൾസെന്ററു കളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായി ഡി ഐ

പ്രവീൺകുമാർ അറിയിച്ചു തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇവർ കഴിഞ്ഞ മൂന്ന് വർഷമായി കോൾ സെന്റർ നടത്തിവരികയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ്

ഇരു രാഷ്ട്രങ്ങളും വിവിധ മേഖലകളിൽ പൂലർത്തേണ്ട സഹകരണം വർദ്ധി പ്പിക്കാനും ഫോറത്തിൽ ധാര്യണിയായി

പരസ്പര ബന്ധം ദൃഢപ്പെടുത്തുന്ന പരസ്പര വിശ്വാസം നിലനിർത്തുന്നതിലും ഇരു രാഷ്ട്ര തിലും ങ്ങളിലെ രാഷ്ട്രീയ സംവിധാനം അക്ഷീണം പരിശ്രമിക്കുകയാണെന്ന് ശ്രീമതി

ഇതിനു മുൻപ് പ്രഥമ ഇന്ത്യ ചൈനാ ഉന്നതതല മെക്കാനിസം യോഗത്തിലാണ് സുഷമ സ്വരാജും വാങ് ഇ യും ആദ്യ മായി ഒരേ വേദി പങ്കിട്ടത്

രാജ്യത്ത് രക്തസംബന്ധമായ അസുഖം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ മൂന്നിലൊന്ന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമുള്ള ജനങ്ങളിലാണ് തെലങ്കാനയിലെ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണമാണ് കരിംനഗറിൽ പ്രവർത്തിക്കുന്ന സെന്ററിന്റെ ലക്ഷ്യം

സഖ്യകക്ഷിയായ കോൺഗ്രസ് രണ്ട് മന്ത്രിമാരെ മാറ്റി പുതിയ എട്ട് പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ജനതാദൾ എസ് ഒഴിവിലുള്ള രണ്ട് കാബിനറ്റ് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല

തന്റെ പിതാവ് രാമലിംഗ റെഡ്ഡിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാത്തിൽ ജയനഗർ എം എൽ എ സൌമൃ റെഡ്നി പരസ്യമായി അസംതൃപ്തി രേഖപ്പെടുത്തി

ആൾക്കൂട്ട കൊലപാതകം എന്ന രീതിയിൽ കേസ് പരിഗണിച്ച് ജില്ലാ കോടതി ജഡ്ജി ഋഷികേഷ് കുമാറാണ് പ്രതികളായി എട്ട് പേർക്കും ശിക്ഷ വിധിച്ചത്

ലോക ചാമ്പ്യൻ സ്പെയിനിന്റെ കരോളീന മാരിൻ ഇന്ത്യയുടെ പി

സിന്ധു ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾ ലീഗിൽ മത്സരിക്കുന്നു

ഇത് സംബന്ധിച്ച് ബംഗ്ലാദേശ് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് റോബർട്ട് പല്ലാദിനോ പറഞ്ഞു

മലപ്പുറത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി അവലോകന യോഗത്തിൽ സംസാരീക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതികൾ പ്രായോഗികമാണോ എന്ന് രൂപീകരണ ഘട്ടത്തിൽ തന്നെ നിശ്ചയിക്കാനാകണമെന്ന് മന്ത്രി പറഞ്ഞു